യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടുദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് നാളെ അഹമ്മദാബാദിലെത്തും

ലോക്നാഥ് ബെഹ്റ കണ്ണൂർ പയ്യന്നൂരിൽനിർമ്മിക്കുന്ന കോടതി സമുച്ചയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിലാസ്ഥാപനം നടത്തി

രാജ്യത്തിന്റെ വൈവിധ്യം ഓരോ ഇന്ത്യക്കാരനിലും അഭിമാനബോധം നിറയ്ക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാഷ്ട്രത്തിന്റെ വിശാലതയും വൈവിധ്യവും പൌരന്മാർക്ക് പ്രചോദനമേകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു

പുനർഹട്ടിൽ ഈയിടെ നടത്തിയ സന്ദർശനം അനുസ്മരിച്ച പ്രധാനമന്ത്രി രാഷ്ട്രത്തിന്റെ വൈവിധ്യമാർന്ന വിശാല തയും സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും പാചകരീതിയും വികാരങ്ങളുടെ ഊഷ്മളതയും പ്രതിഫലിക്കുന്നതാണെന്ന് പറഞ്ഞു പരമ്പരാഗത വസ്ത്രങ്ങൾ കരകൌശല വസ്തുക്കൾ പാത്രങ്ങൾ പര വതാനികൾ മുള പിച്ചള ഉൽപ്പന്നങ്ങൾ സംഗീത ഉപക്രണങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ശേഖരം ഇന്ത്യൻ കലയുടേയും സംസ്കാരത്തിന്റെയും വൈവിധ്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

രാജ്യത്ത് ഇതുവരെ കണ്ടെത്താത്ത അത്ഭുതങ്ങൾ കണ്ടെത്തുക എന്നത് നമ്മുടെ അന്വേഷണ കൌതുകത്തിന്റെ ഭാഗമാണ് ഈയടുത്ത കാലത്ത് കുട്ടികളിലും യുവാക്കളിലും ശാസ്ത്രത്തോടും സാങ്കേതികവി ദൃയോടും ഔത്സുകൃം കൂടിയിട്ടുണ്ടെന്നും ഈ ഉത്സാഹം വർദ്ധിപ്പിക്ക ണമെന്നും പ്രധാനമന്ത്രി പ്രറഞ്ഞു ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണം പതിനായിരമാളുകൾ നേരിട്ടുകാണാൻ സൌകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ സൌകര്യം പ്രയോജന പ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

എസ് ആർ ഒയുടെ യുവിക പരിപാടി യുവാക്കളെ ശാസ്ത്രവു മായി കൂടുതൽ ബന്ധിപ്പിക്കുന്നതിന് നടത്തുന്ന ശ്രമമാണ് യുവ വിജ്ഞാനിക് കാര്യക്രം എന്ന യുവിക പരിപാടി ഗവൺമെന്റിന്റെ ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ ജയ് അനുസന്ധാൻ കാഴ്ചപ്പാടു കളുമായി ചേർന്നുപോകുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഈ പരി പാടിയിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ അവധിക്കാലത്ത് ഐ എസ്

ഒയുടെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ബഹിരാകാശ സാങ്കേതിക വിദ്യ ബഹിരാകാശ ശാസ്ത്രം എന്നിവയിൽ പഠനം നടത്താമെന്നും പ്രധാന മന്ത്രി പറഞ്ഞു

ഉത്സാഹവും ഇച്ഛാശ ക്തിയും ഏതൊരു പ്രതിസന്ധിയേയും മാറ്റിമറിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മഹാശിവരാത്രി ആശംസ നേർന്ന പ്രധാനമന്ത്രി ഉത്സവങ്ങളും ആഘോഷങ്ങളും രാജ്യത്തിന്റെ അവിഭാജ്യഘടകമാണെന്നും ഐക്യ ത്തിന്റെ സന്ദേശമാണ് ഇവ നൽകുന്നതെന്നും വ്യക്തമാക്കി

പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടു ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് നാളെ എത്തും

റോഡ് ഷോയിൽ പങ്കെടുക്കും സബർമതി ആശ്രമം സന്ദർശിച്ച് മഹാത്മാഗാന്ധിയ്ക്ക് ആദരാജ്ഞലി അർപ്പിക്കുന്ന് പ്രതിനിധി സംഘം സർദാർ വല്ലഭായ് പട്ടേൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നമസ്തേ ട്രംപ് പരിപാടിയിൽ പങ്കെടുക്കും ഉച്ചയ്ക്കുശേഷം ആഗ്രയിൽ താജ്മ ഹലും സംഘം സന്ദർശിക്കും ചൊവ്വാഴ്ച രാവിലെ പത്തിന് രാഷ്ട്രപതി ഭവനിൽ ഡൊണാൾഡ് ട്രംപ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായി കൂടിക്കാഴ്ച നടത്തും

വെടിയുണ്ടകളിൽ പാക്മുദ്ര ഉള്ളതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടിയതെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇതരസം സ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളുമായി ആശയവിനിമയം നടത്തി യതായും ബെഹ്റ തിരുവനന്തപുരത്ത് പറഞ്ഞു കുളത്തൂപ്പുഴയിൽ പാക്നിർമ്മിതമെന്ന് സംശയിക്കുന്ന വെടിയുകൾ കത്തിയ പ്രദേശത്ത് കൂടുതൽ പരിശോധന തുടങ്ങി കുളത്തൂപ്പുഴ യിലും പരിസര വനമേഖലയിലും ബോംബ് സ്ക്വാഡാണ് പരിശോധന നടത്തുന്നത്

കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിലെത്തിയാണ് അദ്ദേഹം പരിശോധന നടത്തിയത്

സംഭവത്തെക്കുറിച്ച് അന്വേ ഷിക്കാൻ മിലിട്ടറി ഇന്റലിജൻസ് സംഘം ഇന്ന് എത്തിയേക്കും കണ്ണൂർ പയ്യന്നൂരിൽ നിർമ്മിക്കുന്ന കോടതി സമുച്ചയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിലാ സ്ഥാപനം നടത്തി പിതിനാല് കോടി രൂപ ചെലവിൽ ആധുനിക സൌകര്യങ്ങളോടെ ആറ് നിലകളുള്ള കെട്ടിടം ആണ് നിർമ്മിക്കുന്നത്

എല്ലാ കോടതികളിലും കോർട്ട് ഹാളിനോട് ചേർന്ന് ഇരുനൂറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന വീഡിയോ കോൺഫറൻസ് ഹാളും ഒരുക്കും

ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒഡീഷ എഫ്

യെ നേരിടും

ആറാം സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരമാണിത് വയനാട് ജില്ലയിലെ ഗോത്ര വിഭാഗക്കാരായ കുട്ടികൾക്ക് കായിക മേഖലയിൽ കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് സ്പോർട്സ് കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ പറഞ്ഞു സ്പോർട്സ് കൌൺസിൽ ഓഫീസിന്റെ പുതിയ കെട്ടിടം കൽപ്പറ്റ സിവിൽസ്റ്റേഷനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ

ഗവൺമെന്റ് ഭൂമിയിലെ അനധികൃത പാറമടകളുടെ പ്രവർത്തനം തട യണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി നാളെ പരിഗണി ക്കും

കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ കാർഗോ കോംപ്ലക്സ് പ്രവർത്തനക്ഷമമാകുന്നതോടെ കേരള ചുമട്ടു തൊഴിലാളി നിയമവും ക്ഷേമ പദ്ധതികളും ബാധക മാക്കുമെന്ന് ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു ഇതു സംബന്ധിച്ച് കേരള ഹെഡ് ലോഡ് ആന്റ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ

രാഘവൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സമഗ്ര ആരോഗ്യ സ്ഥിതി ലക്ഷ്യ മാക്കി കോഴിക്കോട്ട് മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ പ്രദർശനവും തുടങ്ങി

പണ്ഡിറ്റ് ദീനദയാൽ ഉപാദ്ധ്യായയുടെ ബലിദാന ദിനത്തോട നുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സമർപ്പണ നിധി സമാരോഹും അനുസ്മരണ സമ്മേളനവും നാളെ വൈകുന്നേരം കണ്ണൂർ താളിക്കാവ് മാരാർജി ഭവനിൽ നടക്കും

ദേശീയ സമിതി അംഗം സി

പത്മനാഭൻ അനുസ്മരണ പ്രഭാഷണം നടത്തും ഇൻഡ്യൻ ആർമി ലക്ഷദ്വീപ് ഉദ്യോഗാത്ഥികൾക്കായി നടത്തുന്ന ആർമി റിക്രൂട്ട്മെന്റ് റാലിയും പൊതു പ്രവേശന പരീക്ഷയും ഇന്ന് വൈകുന്നേരം കവരത്തി സ്കൂൾ സ്റ്റേഡിയം ഗ്രൌണ്ടിൽ സമാപിക്കും സോൽജിയർ സോൽജിയർ ക്ലർക്ക് സോൾജിയർ ട്രെഡ്സ്മാൻ ഉൾപെടെ അഞ്ച് വിഭാഗങ്ങളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കാത്ത അധ്യാപകർ ജോലി ചെയ്യുന്ന കോളേജുകൾക്ക് പിഴ ചുമത്താൻ കേരള സാങ്കേതിക സർവ്വകലാശാല തീരുമാനം

ഇത്തരം കോളേജുകൾക്ക് നെഗറ്റീവ് പോയിന്റ് നൽകാനും തീരുമാനമുണ്ട് അവിനാശി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ റോഡ് സുരക്ഷാ അടിയന്തിര യോഗം മറ്റന്നാൾ വൈകീട്ട് മൂന്നിന് ഗതാഗതമന്ത്രിയുടെ ചേംബറിൽ തിരുവനന്തപുരത്ത് നടക്കും വാഹനങ്ങളുടെ അമിതവേഗം നിയന്ത്രിക്കുന്നതും മുൻ കരുതലുകൾ സ്വീകരിക്കുന്നതും ആലോചിക്കുന്നതിനാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ് അടിയന്തിര യോഗം വിളിച്ചു ചേർക്കുന്നത്